കേരളത്തിൽ കാലവർഷം ശക്തമായി

സുപ്രധാനമായ ഉച്ചകോടിയ്ക്കായി ഉത്തരകൊറിയൻ പ്രസിഡന്റ് കിംഗ് ജോങ് ഉന്നും യു

കൂടുതൽ വിവരങ്ങളുമായി പ്രസാദ് നീലേശ്വരം

അന്താരാഷ്ട്ര ഗതാഗത ഇടനാഴിയായ ഐ

എസ്

സിക്ക് രൂപം നൽകുന്നതും ഈ ലക്ഷ്യത്തോടെയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

ബ്രഹ്മപുത്ര നദീജലം പങ്കിടുന്നതിനും ബിസ്റ്റുമതി ഒഴികെയുള്ള അരിഇനങ്ങൾ ചൈനയിലേക്ക് കയറ്റുമതി ചെയ്യുന്നതിനുമുള്ള കരാറുകളിലാണ് ഇരുരാഷ്ട്ര നേതാക്കന്മാരും ഒപ്പിട്ടത്

റവന്യൂ സാമ്പത്തിക സേവനം കൃഷി വാണിജ്യം സിവിൽ ഏവിയേഷൻ തുടങ്ങിയ മേഖലകളിൽ ജോയിന്റ് സെക്രട്ടറി റാങ്കിലുള്ള ഉദ്യോഗത്തിനുവേണ്ടിയാണ് പുതിയ വിജ്ഞാപനം മൂന്ന് വർഷം മുതൽ അഞ്ച് വർഷം വരെ കരാർ അടിസ്ഥാനത്തിലായിരിക്കും നിയമനമെന്ന് കേന്ദ്ര പേഴ്സണൽ ആന്റ് ട്രയിനിംഗ് വകുപ്പ് വ്യക്തമാക്കി സ്വകാര്യ കമ്പനികൾ സ്വയംഭരണ സ്ഥാപനങ്ങൾ സർവകലാശാലകൾ കൺസൾട്ടൻസി സ്ഥാപനങ്ങൾ അന്തർദേശീയ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ ജോലി ചെയ്യുന്ന കഴിവുറ്റ് പ്രൊഫഷണലുകൾക്ക് നൽകുകയാണ് ലക്ഷ്യം സംസ്ഥാനങ്ങളിലും അവസരം കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലും സമാന തസ്തികകളിൽ ജോലി ചെയ്യുന്ന പരിചയസമ്പന്നർക്കും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്

മേഖലയിൽ ആയുധധാരികളായ ഒരുസംഘം ഭീകരർ നുഴഞ്ഞ് കയറ്റത്തിന് ശ്രമിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട സേന നടത്തിയ സൈനിക നടപടിയിലാണ് ഭീകരരെ വധിച്ചതെന്ന് പ്രതിരോധ വക്താവ് ആകാശവാണിയോട് പറഞ്ഞു

മരിച്ചവരിൽ മൂന്ന് പേർ കൂട്ടികളും രണ്ട് പേർ സ്ത്രീകളുമാണ് റായി ബെറേലി അലഹബാദ് റോഡിൽ പുഞ്ചഖാർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ജീപ്പും ട്രക്കും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് ജീപ്പിലെ യാത്രക്കാരാണ് മരിച്ചത് ഇവർ ഒരു കുടുംബത്തിലെ അംഗങ്ങളാണെന്ന് പോലീസ് പറഞ്ഞു

ജോസഫിനെ സുപ്രീം കോടതി ജഡ്ജിയായി നിയമിക്കുന്നത് സംബന്ധിച്ച് കോൺഗ്രസ് അനാവശൃ വിവാദങ്ങൾ ഉണ്ടാക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി അരുൺ ജെയ്റ്റ്ലി കോളീജിയത്തിന്റെ തീരുമാനങ്ങൾ ഇതിന് മുമ്പും ഗവൺമെന്റുകൾ ചോദ്യം ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഉത്തരാഖണ്ഡ് ചീഫ് ജസ്റ്റിസായ ജസ്റ്റിസ് കെ

ജോസഫിനെ സുപ്രീംകോടതിയിലേക്ക് നിയമിക്കുന്നതിന് സുപ്രീംകോടതി കൊളീജിയത്തിന്റെ നിർദ്ദേശം കേന്ദ്ര ഗവൺമെന്റ് പുനപരിശോധനക്ക് തിരിച്ചടിയായിരുന്നു കൊളീജിയം ജസ്റ്റിസ് കെ

ജോസഫിന്റെ പേര് തന്നെ വീണ്ടും നിർദ്ദേശിച്ചിട്ടുണ്ട് കൊളീജിയത്തിന്റെ നിർദ്ദേശങ്ങളിൽ ചില മാറ്റങ്ങൾ വരുത്താൻ ഗവൺമെന്റിന് മാർഗ്ഗ നിർദ്ദേശങ്ങൾ നൽകാമെന്നും അത് ശരിയായ നടപടിക്രമമാണെന്നും ശ്രീ

കോൺഗ്രസ് രാഷ്ട്രീയ ലക്ഷ്യത്തോടെ വിവാദങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് സ്വയം അപഹാസ്യരാകുന്നതിന് തുല്യമാണെന്നും അരുൺ ജെയ്റ്റ്ലി പറഞ്ഞു

മെച്ചപ്പെട്ട ഗർഭകാല പരിചരണവും സാമൂഹിക അവബോധവും സാക്ഷരതയും സ്ത്രീകൾക്ക് ആരോഗ്യ പരിപാലനത്തിന് നല്ല സഹായകമായിട്ടുണ്ടെന്ന് ലോകാരോഗൃ സംഘടനയുടെ മേഖലാ ഡയറക്ടർ പൂനം ഖത്രപാൽ സിങ് പറഞ്ഞു

ഇരുനേതാക്കളും സിംഗപ്പൂർ പ്രധാനമന്ത്രി ലീ ഹെസിൻ ലോങുമായി കൂടിക്കാഴ്ച നടത്തും

ഉത്തരകൊറിയയുമായുള്ള ഉച്ചകോടിയിൽ തനിക്ക് ശുഭാപ്തി വിശ്വാസമുണ്ടെന്ന് ട്രംപ് ടിറ്ററിൽ കുറിച്ചു

ഇത് ആദ്യമായാണ് ഒരു അമേരിക്കൻ പ്രസിഡന്റും ഉത്തരകൊറിയൻ നേതാവുമായി ഉച്ചകോടിയിൽ ഏർപ്പെടുന്നത്

ദേശീയ തലസ്ഥാനമായ ന്യൂഡൽഹിയിൽ ഇന്ന് രാവിലെ ശക്തമായ മഴയും പൊടിക്കാറ്റും ഉണ്ടായി

മധ്യ കിഴക്കൻ മധ്യ പടിഞ്ഞാറൻ കിഴക്ക് പടിഞ്ഞാറൻ അറേബ്യൻ കടലിലും ഒഡീഷ പശ്ചിമബംഗാൾ എന്നീ സംസ്ഥാനങ്ങളുടെ തീരങ്ങളിലും കടൽ പ്രക്ഷുബ്ധമാകാൻ സാധ്യതയുള്ളതിനാൽ മീൻപിടുത്തക്കാർ ശ്രദ്ധിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു

ഇന്നും ഇന്നലെയുമായി തുടർച്ചയായി പെയ്യുന്ന മഴ ഒട്ടേറെ നാശനഷ്ടമുണ്ടായി തിരുവനന്തപുരംതൃശ്ശൂർ ഇടുക്കി കോഴിക്കോട് കണ്ണൂർ ജില്ലകളിലാണ് മഴ കൂടുതൽ നാശം വിതച്ചത്

ഇടുക്കി ജില്ലയിലെ രാജാക്കാട് കടിമാലിയിൽ ഉരുൾപൊട്ടൽ വൻ നാശം വിതച്ചു ജില്ലയിലെ പ്രൊഫഷണൽ കോളേജ് ഒഴികെയുള്ള എല്ലാം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാകളക്ടർ അവധി പ്രഖ്യാപിച്ചു

മണ്ണാർക്കാട് അട്ടപ്പാടി ചുരം റോഡിൽ മരം വീണ് റോഡ് ഗതാഗതം തടസ്സപ്പെട്ടു

എറണാകുളം ജില്ലയിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി

കേരളത്തിലും ലക്ഷദ്വീപിലും കടലിൽ അതിശക്തമായ തിരമാല ഉണ്ടാവാൻ സാധൃതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണകേന്ദ്രം മുന്നറിയിപ്പ് നൽകി മത്സ്യതൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് നിർദ്ദേശമുണ്ട്

കോഴിക്കോട് കളക്ട്രേറ്റിൽ ചേർന്ന സർവകക്ഷിയോഗമാണ് ഇത് സംബന്ധിച്ച തീരുമാനം എടുത്തത് നിപയുമായി ബന്ധപ്പെട്ട ആശങ്കകൾക്ക് വിരാമമായെന്നും സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമായെന്നും മന്ത്രി പറഞ്ഞു

കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന രണ്ട് പേർ സുഖം പ്രാപിച്ച് വരുന്നതായി മന്ത്രി അറിയിച്ചു അതുല്യമായ സേവനം കാഴ്ച വച്ച ആരോഗ്യ വകുപ്പിലെ പ്രവർത്തകരെ സർവ്വകക്ഷി യോഗത്തിൽ പങ്കെടുത്ത് ഏവരും അഭിനന്ദിച്ചു

ടൂർണമെന്റിലെ മൂന്ന് മത്സരങ്ങളിൽ രണ്ടിലും ഇന്ത്യ ജയം നേടിയിരുന്നു

കോലാലംപൂരിൽ നടന്ന ഫൈനൽ മത്സരത്തിൽ നിലവിലെ ചാമ്പൃന്മാരായ ഇന്ത്യയെ മൂന്ന് വിക്കറ്റിനാണ് ബംഗ്ലാദേശ് പരാജയപ്പെടുത്തിയത്

റുമാന അഹമ്മദ് ഖദീജ കുബ്റ എന്നീ ബൌളർമാർ മികച്ച പ്രകടനം കാഴ്ചവെച്ചു